രാജ്യസഭ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയും ലോക്സഭ ഉച്ചയ്ക്ക്ശേഷം മൂന്ന് മുതൽ വൈകിട്ട് ഏഴ് വരെയുമാണ് സമ്മേളിക്കുക

കോവിഡ് സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് സമ്മേളനം

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെയും നിലവിലെ സാഹചര്യങ്ങളെയും കുറിച്ച് ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ ഇരുസഭകളിലും ഇന്ന് പ്രസ്താവന നടത്തും ക്ലാർഷികോത്പാദന പ്രോത്സാഹന ബിൽ കർഷക ശാക്തീകര്യ്ക്ക് സ്ട്രക്ഷണ വില സുരക്ഷാ ബിൽ ഹോമിയോപ്പതി സെൻട്രൽ കൌൺസിൽ ഭേദഗതി ബിൽ ഇന്ത്യൻ മെഡിക്കൽ സെൻട്രൽ കൌൺസിൽ ഭേഗഗതി ബിൽ അവശ്യ സാധന ഭേദഗതി ബിൽ ബാങ്കിംഗ്ല് റെഗു്ലേഷൻ ഭേഗദതി ബിൽ മന്ത്രിമാരുടെ ശമ്പള അലവൻസ് ഭേദ്ഗതി ബിൽ ദുരന്ത നിവാരണ ഭേഗദതി ബിൽ എന്നിവ പരിഗണനയ്ക്ക് വരും

എന്നാൽ വാക്സിൻ എപ്പോൾ തയ്യാറാകുമെന്ന് കൃത്യമായി പറയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു സൺഡേ സംവാദ് ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി

വാക്സിന്റെ സുരക്ഷിതത്വം ചെലവ് ഉത്പാദനം വില വിതരണം തുടങ്ങിയവയെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

സമ്പർക്കത്തിലൂടെ രോഗവ്യാപനം സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്

മഹാരാഷ്ട്ര ആന്ധ്ര പ്രദേശ് കർണാടക തെലങ്കാന ഗുജറാത്ത് രാജസ്ഥാൻ മധ്യ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്രം ഈ നിർദേശം നൽകിയത്

ഇറക്കുമതി കുറയ്ക്കുന്നതിനായി ആത്മ നിർഭർ ഭാരത് പദ്ധതിയിലൂടെ നാൽപ്പതിനായിരം കോടി രൂപ മുതൽമുടക്കിൽ പുതിയ രാസവള നിർമാണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

യു മുൻ വിദ്യാർത്ഥി ഉമർ ഖാലിദിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് ഇയാൾക്കെതിരെ യു എ

സാഹിത്യ സെമിനാർ കവി സമ്മേളനം വിവിധ സാഹിത്യ മത്സരങ്ങൾ ഔദ്യോഗിക ഭാഷാ ശിൽപ്പശാല ഹിന്ദി പ്രചാരണ പരിപാടികൾ എന്നിവ രണ്ടാഴ്ചത്തെ ആഘോഷത്തിന്റെ ഭാഗമായി നടക്കും

എസ് ഓപ്പൺ ടെന്നീസ് സിംഗിൾസ് പുരുഷ കിരീടം ഓസ്ട്രിയയുടെ ഡൊമിനിക് തീമിന് ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ ടൈ ബ്രേക്കിൽ പരാജയപ്പെടുത്തിയാണ് ഡൊമിനിക് തീം കിരീടമണിഞ്ഞത്

ഫുട്ബോളിനായി സിന്തറ്റിക് ട്രാക്ക് ആന്റ് ആസ്ട്രോ ടർഫ് ലേയിലെ തുറന്ന സ്റ്റേഡിയത്തിലും ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജിംനേഷ്യത്തിനും മന്ത്രി തറക്കല്പിടും

സമൂഹത്തിലെ ദരിദ്രവിഭാഗങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ പാചകാവശ്യത്തിന് വൈദ്യുതി നൽകുന്നത് രാജ്യത്തെ സ്വാശ്രയത്വത്തിലേക്ക് നയിക്കാൻ സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര വൈദ്യുതി മന്ത്രാലയത്തിന്റെ കീഴിൽ പവർ ഫൌണ്ടേഷൻ രൂപീകരിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നതായും മന്ത്രി വൃക്തമാക്കി

കോവിഡ് മഹാമാരിയെ തുടർന്ന് കേന്ദ്രത്തിൽ നിന്ന് നഷ്ടപരിഹാരം ലഭീക്കുന്നതിനായാണ് ജി

ടി കൌൺസിൽ വായ്പയെടുക്കാനു്ള്ള ഓപ്ഷനുകൾ നിർദ്ദേശിച്ചത്

ഗോവ അസം അരുണാചൽപ്രദേശ് നാഗാലാന്റ് മിസോറാം ഹിമാചൽ പ്രദേശ് തുടങ്ങി ആറ് സംസ്ഥാനങ്ങൾ കൂടി രണ്ടു ദിവസത്തിനുള്ളിൽ ഓപ്ഷൻ നൽകും മറ്റു ചില സംസ്ഥാനങ്ങൾ വായ്പ സംബന്ധിച്ചുള്ള തങ്ങളുടെ അഭിപ്രായങ്ങൾ ജി

കൊറോണ വൈറസ് പ്രതിസന്ധിക്കിടെ ജി എസ് ടി വരുമാനം നഷ്ടപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് പൂർണമായും നഷ്ടപരിഹാരം നൽകണമെന്ന് അറ്റോർണി ജനറൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ലോക്ഡൌണിനെ തുടർന്ന് ഈ വർഷം വരുമാന വർദ്ധന ഉണ്ടാക്കാത്ത സംസ്ഥാനങ്ങൾക്ക് ജി എസ് ടി കുടിശ്ശിക നൽകുന്നത് കേന്ദ്രത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കയാണ് കോവിഡിന് മുൻപ് തന്നെ സംസ്ഥാനങ്ങൾക്കുള്ള നഷ്ടപരിഹാര സെസുകൾ നൽകുന്നതിലും ജി

ടി വരുമാനത്തിലും കുറവ് ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

അനധികൃത കയറ്റുമതിയും ഇറക്കുമതിയും സംബന്ധിച്ച നീക്കങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് സസ്പെൻഷൻ

ഓൺലൈനായി നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ

വേങ്ങാട് പഞ്ചായത്ത് പ്പാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ വി എസ് സുനിൽ ക്ടുമാർ എ സി മൊയ്തീൻ എന്നിവരും ഓൺലൈനായി പങ്കെടുക്കും

കുറ്റിയാർ പ്രദേശത്തെ പട്ടയഭൂമി കൈവശക്കാർക്ക് കൈമാറിയതിന്റെ പൂർത്തീകരണ പ്രഖ്യാപനവും മന്ത്രി നിർവ്വഹിക്കും

ആയിരത്തിൽപ്പരം പട്ടയങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്

പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട് സാമൂതിരി സ്കൂൾ പരിസരത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ

കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം രാവിലെ മാവൂർ റോഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റ് പരിസരത്ത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം

രമേശ് നിർവ്വഹിക്കും